പ്രസിഡന്റ് ഗോതബയ രജപക്സെയുമായി കൂടിക്കാഴ്ച നടത്തും

പദ്ധതികൾ വിലയിരുത്തുമെന്ന് മഹാരാഷ്ട്ര ഗവൺമെന്റ് പ്രഥമ മന്ത്രിസഭാ യോഗം മുംബൈയിൽ ചേർന്നു

വിഭാഗം വൃക്തിഗത റികർവ് മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളായ ദീപിക കുമാരിക്ക് സ്വർണവും അങ്കിത ഭകട്ടിന് വെള്ളിയും

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തും ് ശ്രീലങ്കൻ പ്രസിഡന്റ് പിന്നീട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കും ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ശ്രീലങ്കൻ പ്രസിഡന്റിന് ആചാരപരമായ വരവേൽപ്പ് നൽകും മൂന്നു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ടാണ് പ്രസിഡന്റ് രജപക്സെ ന്യൂഡൽഹിയിലെത്തിയത് ശ്രീലങ്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള പ്രസിഡന്റ് രജപക്സെയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്

രാഷ്ട്രിട്ട്പ്തി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ ഉന്നതതല സീന്ദൂർശ്നം ഇന്ത്യയുടെ വിദേശകാര്യനയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണെന്ന് വിദേശകാര്യമന്ത്രി രാജ്യസഭയെ അറിയിച്ചു

ഡി എ ഗവൺമെന്റിന്റെ ആദ്യ ആറുമാസം അയൽരാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുമായും മികച്ച ബന്ധമാണ് ഇന്ത്യ കാംഷിക്കുന്നതെന്നും ഡോ

ഗൾഫ് രാജ്യങ്ങളുമായും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും വിദേശനയത്തിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സുസ്ഥിര വികസനത്തിനും ബഹുമുഖ സംവിധാനങ്ങളുടെ നവീകരണത്തിനും വിദേശനയത്തിൽ മുൻഗണന നൽകിവരുന്നതായും ശ്രീ ജയശങ്കർ അറിയിച്ചു

ഉദ്ധവ് താക്കറെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെയല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ മൊത്തം വികസമാണ് മന്ത്രിസഭയുടെ ലക്ഷ്യമെന്ന് ശ്രീ

മറാത്ത്വാഡ വിദർഭ ഉത്തര മഹാരാഷ്ട്ര എന്നിവയെക്കുറിച്ച് പൊതു മിനിമം പദ്ധതിയിൽ പരാമർശിക്കാത്തതിൽ മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉയർത്തിയ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

നേരത്തെ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാണ് സംസ്ഥാനത്തിന്റെ പതിനെട്ടാമത് മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ സത്യപ്രതിജ്ഞു ഉചയ്തത്

ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡേ സുബാഷ് ദേശായ്ട് എൻസിപിയുടെ ജയന്ത് പാട്ടീൽ ഛഗൻ ഭൂജ്പൽ കോൺഗ്രസിന്റെ ്വാല്സാഹേബ് തൊറാട്ട് നിതിൻ റാവത് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു ശിവസേന എൻ സി പി കോൺഗ്രസ്സ് ത്രികക്ഷി സഖ്യത്തിലെ ആറ് പ്രേരാ്ണ് ഉദ്ധവ് താക്കറെയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് സ്ത്യപ്രതിജ്ഞാ ചടങ്ങിനുശേഷം മുംബൈയിലെ സഹ്യാദ്രി ഗസ്റ്റ് ഹൌസിൽ വച്ചായിരുന്നു മന്ത്രിസഭയുടെ ആദ്യ യോഗം ന്യൂസ് ഡെസ്ക് ആകാശവാണി

റൈഫിളുകൾക്കായുള്ള തെർമൽ ഇമേജിങ്ങ് നൈറ്റ് സൈറ്റുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത് അഡീഷണൽ എയർബോൺ കൺട്രോൾ സിസ്റ്റം മീഡിയം റേഞ്ച് ആന്റിമറൈൻ വാർഫെയർ എയർക്രാഫ്റ്റ് ടിൻ എഞ്ചിൻ ഹെവി ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സംഭരണത്തിനും യോഗം അനുമതി നൽകി

കരിംപൂർ മണ്ഡലം നിലനിർത്തിയ പാർട്ടി ഖരഗ്പൂർ ബിജെപി യിൽ നിന്നും കാളിയഗഞ്ച് കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തു മൂന്നു മണ്ഡലങ്ങളിലും മൂന്നാമതെത്താനേ ബിജെപിക്ക് കഴിഞ്ഞുള്ളൂ

കാളിയാഗഞ്ചിൽ തപൻ ഭേബ് സിൻഹയും ഖ്ര്ഗ്പൂരിൽ പ്രദീപ് സർക്കാരും കരിംപൂർ മണ്ഡലത്തിൽ ബിമുല്ലേന്റു് സിൻഹ റോയിയുമാണ് വിജയിച്ചത്

അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനൃത്തോടൊപ്പം കൃതജ്ഞതാ പ്രകടന അവധി ആഘോഷിക്കാനായി അപ്രതീക്ഷിത സന്ദർശനത്തിനെത്തിയ വേളയിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയുടെ വർഷങ്ങൾ നീണ്ട യുദ്ധ പ്രദേശത്തേക്കുള്ള ട്രംപിന്റെ ആദ്യ സന്ദർശനമാണിത് ഇന്നലെ ബഗ്രാം എയർ ഫീൽഡിൽ എത്തിയ ട്രംപ് രണ്ട് മണിക്കൂർ സമയം ഇവിടെ ചെലവഴിച്ചു

അമേരിക്കയുമായി സന്ധിയിൽ ഏർപ്പെടാൻ താലിബാൻ ആഗ്രഹിക്കുന്നതായും അവരുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു സെപ്റ്റംബറിലെ ചർച്ച ഒഴിവാക്കിയ ശേഷം താലിബാനുമായി സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതായും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു

നഗരത്തിലെ രണ്ട് പാലങ്ങൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചതിനെ തുടർന്നാണ് വെടിവെയ്പ് ഉണ്ടായത് ഗവൺമെന്റ് മന്ദിരങ്ങൾക്കും നിയമസഭാംഗങ്ങളുടെ വീടുകൾക്കും നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു നജാഫ് പട്ടണത്തിലെ ഇറാനിയൻ കോൺസുലേറ്റും പ്രക്ഷോഭകാരികളുടെ മരണത്തെ തുടർന്ന് വെടി ഉതിർക്കലിന് ഓർഡർ നൽകിയ കമാൻഡർ ജാമിൽ ഷുമാറിയെ ഇറാഖ് പ്രധാനമന്ത്രി അഡൽ അബ്ദൽ മഹദി പുറത്താക്കി

ഇരുപൂരും ഒളിമ്പിക് മത്സരങ്ങളിലേക്ക് നേരത്തേ യോഗ്യത നേടിയിരുന്നു

നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വോളിബോളിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരങ്ങളിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ വിജയികളായി ഗ്രൂപ്പ് എ മാച്ചിൽ ഇന്ത്യയുടെ പുരുഷ ടീം ബംഗ്ലാദേശിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി വനിതകളുടെ ഗ്രൂപ്പ് എ യിൽ ഇന്ത്യൻ വനിതകൾ ആതിഥേയരായ നേപ്പാളിനെ കീഴടക്കി ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഞായറാഴ്ചയാണെങ്കിലും ഏതാനും മത്സരങ്ങൾ നേരത്തെ തുടങ്ങുകയായിരുന്നു

എന്നാൽ പുരുഷ സിംഗിൾസിൽ നിന്നും ലക്ഷ്യസെൻ പുറത്തായി

അതിനിടെ അപ്പീലുകൾക്ക് തടയിടുന്നതിന്റെ ഭാഗമായി ഇക്കാര്യത്തിലെ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസവകുപ്പ് നടപടികൾ തുടങ്ങി